ഒരുക്കങ്ങൾ പൂർത്തിയായി

സ്ഥാനാർത്ഥി നിർണ്ണയം സജീവം ്യൂഎൽ ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു സംഘർഷം നിലനിൽക്കുന്നു പീറവം പള്ളി ജില്ലാ ന് ഭരണകൂടം ഏറ്റെടുത്തു ്താക്കോൽ നാളെ ഹൈക്കോടതിക്ക് ക്കെമാറും

മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും മത്സരം രാത്രി ഏഴ് മുതൽ

വോട്ടെണ്ണലിനുള്ള സജ്ജീകരണങ്ങൾ ് പൂർത്തിയായതായി ജില്ലാ വരണാധികാരി കൂടിയായ കളക്ടർ അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം പ്രതിനിധി ടോം മാത്യു

തിരുവനന്തപുരം മേയർ വി കെ പ്രശാന്ത് വട്ടിയൂർക്കാവിൽ സ്ഥാ്നാർത്ഥിയാകും

മിഞ്ച്ചേശ്രത്ത് സിപിഐ എം ജില്ലാ കമ്മിറ്റിയംഗം എം

ഡി

പിറവം ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന പിറവം പള്ളി ജില്ലാഭരണകൂടം ഏറ്റെടുത്തു ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് ഇത് വിദഗ്ധരുമായി ആലോചിച്ച ശേഷം തുടർനടപടികൾ സ്വീകരിക്കുമെന്ന് എറണാകുളം ജില്ലാകളക്ടർ എസ് സുഹാസ് അറിയിച്ചു പള്ളിയിൽ പ്രതിഷേധിച്ചു യാക്കോബായ വിഭാഗത്തെ അറസ്റ്റ് ചെയ്തു നീക്കിയ ശേഷമാണ് കളക്ടർ പള്ളി ഏറ്റെടുത്തത് പള്ളിയുടെ താക്കോൽ നാളെ ഹൈക്കോടതിയിൽ സമർപ്പിക്കുമെന്നും കളക്ടർ പറഞ്ഞു

റെയിൽവെയുടെ ഭാഗത്തുനിന്ന് ഈ പദ്ധതിക്ക് നല്ല പിന്തുണ വേണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു തലശ്ശേരി മൈസൂർ റെയിൽവെ ലൈൻ യാഥാർത്ഥ്യമാക്കണം

നാല് ദിവസം കൊണ്ട് ഒഴിപ്പിക്കൽ പൂർത്തിയാക്കാനാണ് നീക്കം

നിഷ് തിരുവനന്തപുരം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്പീച്ച് ആന്റ് ഹിയറിംഗിൽ അന്താരാഷ്ട്ര ബധിരവാരാചണത്തിന് തുടക്കമായി

സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഉത്തര വിനെ തുടർന്നാണ് നടപടി ട്രായ് ടെലികോം റഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ ബാംഗ്ലൂർ റിജിയണൽ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് ഉപഭോക്തൃ സമ്പർക്ക പരിപാടി സംഘടിപ്പിച്ചു

വാദം പൂർത്തിയാക്കുന്നതിന് വ്യക്തമായ സമയപ്പട്ടിക ത്യ്യാറാക്കാൻ ബന്ധപ്പെട്ട കക്ഷികളോട് ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിച്ചു

അമൃത വിശ്വവിദ്യാപീഠ ക്യാമ്പസിലെ പ്രത്യേക വേദിയിൽ സംഘടിപ്പിച്ചിരിക്കുന്ന ചടങ്ങിൽ നിരവധി പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും വിവിധ സാമൂഹിക ക്ഷേമ പദ്ധതികളുടെ ഉദ്ഘാടനം ധനസഹായ സ്കോളർഷിപ്പ് വിതരണം എന്നിവ ഇതോടനുബന്ധിച്ച് നടക്കും

കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ

കുട്ടികളുടെ ബുദ്ധിമുട്ടുകൾ പങ്കുവയ്ക്കാനും മാനസീകോല്ലാസം നേടാനും ശിശു സൌഹൃദ പോലീസ് സ്റ്റേഷനുകൾ വഴി സാധ്യമാകും

ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പരിപാടി കേൾക്കാം